പദ്ധതികൾക്ക് പ്രധാനമുന്തി ഇന്ന് തുടക്കം കുറിക്കും

ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാണയം പുറത്തിറക്കിയത് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദർവ് നേടിയ മഹാവ്യക്തിത്വമായിരുന്നു വാജ്പേയി നിലനിൽക്കണമെന്ന് അടൽജി എക്കാലവും ആഗ്രഹിച്ചിരുന്നു അധികാരം നിലനിർത്താൻ പ്രത്യയശാസ്ത്രത്തിൽ ഒരു വിട്ട്വീഴ്ചയും ചെയ്തിരുന്നില്ലെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ന്യൂഡൽഹിയിൽ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി മഹേഷ് ശർമ്മ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മുതിർന്ന നേതാവ് എൽ കെ അദാനി എന്നിവർ സംബന്ധിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് ദേശീയപാത സാംസ്കാരിക്കു മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ

ഐ

ഐ

ടിയിൽ നടക്കുന്ന ചടങ്ങിൽ പയ്ക വിപ്ലവ സ്മരണയ്ക്കായി നാണയവും തപാൽ സ്റ്റാമ്പും അദ്ദേഹം പുറത്തിറക്കും

ജയ്പൂരിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കല്യാൺസിംഗ് പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു

റാംബൻ ഖുനി നല്ലായിൽ സ്നെ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു

രഥയാത്രയ്ക്ക് അനുമതി നൽകിയ കൊൽക്കത്ത സിംഗിൾ ബഞ്ച് വിധി ഡിവിഷൻ ബഞ്ച് വെള്ളിയാഴ്ച റദ്ദാക്കിയിരുന്നു

ബി എസ്

പ്രധാനമന്ത്രിക്കൊപ്പം രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയും ധനകാര്യമന്ത്രിയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെത്തുന്നുണ്ട്

സന്ദർശനവേളയിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോത്തേ യ് ഷെരിംഗ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ഭൂട്ടാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ഉപകരിക്കും

ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത് തങ്കഅങ്കി ഘോഷയാത്ര ബുധനാഴ്ച പമ്പയിലെത്തും ശബരിമലയിൽ രാവിലെ ദർശനിത്തിനായി എത്തിയ രണ്ട് സ്ത്രീകൾ പ്രതിഷേധക്കാർ തട്ടഞ്ഞതിനെ തുടർന്ന് മടങ്ങി

ഉപഭോക്തൃ പരാതികളുടെ സമയബന്ധിത തീർപ്പാക്കൽ എന്നതാണ് ഈവർഷത്തെ ഉപഭോക്തൃ ദിനാചരണ സന്ദേശം

ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിൽ കൊടുംതണുപ്പാണ് അനുഭവപ്പെടുന്നത്

ഉത്തർപ്രദേശിലെ പശ്ചിമ ഭാഗങ്ങളിൽ ശൈത്യം അതിരൂക്ഷമാകുമെന്ന് കാലൂപ്പ്സ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മൂടൽമഞ്ഞ് ദൂരക്കാഴ്ചയ്ക്ക് തടസ്സമായി കശ്മീർ താഴ്വരയിലും അതിശൈത്യത്തിന് മാറ്റമില്ല

കേരളം തമിഴ്നാട് ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലെ ചിലസ്ഥലങ്ങളിൽ മഴയോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ദുരിതാശ്വാസത്തിന് സഹായം എത്തിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു രക്ഷാപ്രവർത്തകരുമായി നിരന്തരം ബ്രസ്ഡപ്പെട്ടുവരികയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിറ്റ്യോ ഗുട്ടറസ് പറഞ്ഞു

നവവൽസര സമ്മാനമായി സംസ്ഥാനത്തെ പാവപ്പെട്ട എല്ലാ ജനങ്ങളുടെയും ഭവനങ്ങളിൽ വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്

ഇന്നലെ നടന്ന മത്സരത്തിൽ അഹമ്മദാബാദ് സ്മാഷ് മാസ്റ്റേഴ്സ് നോർത്ത് ഇൌസ്റ്റേൺ വാരിയേഴ്സിനെ തോൽപ്പിച്ചു

നേരത്തെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ച് മുംബൈ റോക്കറ്റ്സ് ജേതാക്കളായി

ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ഓടിക്കൊണ്ടിരുന്ന മിനി ബസിലായിരുന്നു സ്ഫോടനം

ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജെയിംസ് മാറ്റിസ് പ്രതിരോധ സെക്രിട്ടറി പ്രദം രാജിവച്ചത്

ചെലവുകൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വേണം അടുത്ത മൂന്നിനാണ് ഇനി കോൺഗ്രസ് ചേരുന്നത്

ഈ വർഷത്തെ മൂന്നാമത്തെ താൽക്കാലിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്